പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് ഉത്തർപ്രദേശ് സന്ദർശനത്തിൽവാരണസികാൺപൂർ ഗാസിയാബാദ് ജില്ലകളിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തൊട്ടാകെ വിവിധ വനിതാ ശാക്തീകരണ പരിപാടികൾ

ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിനം ഇന്ന് റാഞ്ചിയിൽ

വാരാണസി കാൺപൂർ ഗാസിയാബാദ് എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സംസ്ഥാനത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും ക്ടാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുന്ന ശ്രീ മോദി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും തൊഴിലെടുക്കുന്ന വനിതകളുട്ടെ കൂട്ടായ്മയിൽ അദ്ദേഹം പങ്കെടുക്കും കാൺപൂരിൽ ഒരു മെഗാവാട്ട് ശേഷിയുള്ള പാൻകി വൈദ്യുത പദ്ധതിയും ലക്നൌ മെട്രോ റെയിൽ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം പ്രച്ചെയ്യും ഗാസിയാബാദിൽ ഹിൻഡൻ വിമാനത്തവളത്തിൽ സ്പ്രീവീൽ ടെർമിനലിന്റെ ഉദ്ഘാടന ചടങ്ങും പ്രധാനമന്ത്രിയുടെ കാരൃപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

വിഷയത്തിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ബഞ്ച് ബുധനാഴ്ച വാദം കേട്ട ശേഷം വിധി പറയുന്നത് മാറ്റി വയ്ക്കുകയായിരുന്നു തർക്കം കേവലം ഭൂമി സംബന്ധിച്ചുള്ളതല്ലെന്നും പൊതുവികാരമുൾപ്പെടുന്നതാണെന്നും ബഞ്ച് വൃക്തമാക്കി മധ്യസ്ഥതയ്ക്ക് പരിഗണിക്കുന്നവരുടെ പേരു വിവരം നൽകാൻ കോടതി തല്പര കക്ഷികളോട് നിർദ്ദേശിച്ചു

ഒരുപോലെ ചിന്തിക്കുകകാര്യക്ഷമവുംനൂതനവുമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഈ വർഷത്തെ വനിതാ ദിന സന്ദേശം കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നേർന്നു തന്റെ വിജയത്തിലൂടെ രാജ്യത്തിന്റെ കീർത്തി ഉയർത്തിപ്പിടിച്ച എല്ലാ ഇന്ത്യൻ പുത്രിമാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു വനിതാ ശാക്തീകരണത്തിൽ രാജ്യം ഇനിയും പുരോഗമിക്കുമെന്നും ലിംഗ സമത്പത്തിലൂടെ സമൂഹത്തിൽ വനിതകൾക്ക് പുത്തൻ അവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു

സാമൂഹികക്ഷേമത്തിനും സ്ത്രീശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച വനിതകൾക്കും സ്ഥാപനങ്ങൾക്കും വനിത ശിശുക്ഷേമ മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ് നാരിശക്തി പുരസ്കാരം ബേഠി ബച്ചാവോ ബേഠി പഠാവോ പദ്ധതിയിൻ കീഴിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാക്രമണത്തിന്റെ നിരക്ക് കുറച്ചുക്കൊണ്ടു വന്ന ഒരു സംസ്ഥാനത്തിനും ഒരു സ്ഥാപനത്തിനും കൂടി ഈ വർഷം നാരീശക്തി പുരസ്കാർ നൽകും കേരളത്തിൽ വനിതാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവ്വഹിക്കും

എസ് ഡോളറിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു

മേഖല തിരിച്ചുളള ഇടപെടൽകയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്ന തീരുമാനങ്ങൾവേഗത്തിലുളള പ്രശ്ന പരിഹാരങ്ങൾ എന്നിവയിലൂടെ കഴിഞ്ഞ ആറ് വർഷത്തിൽ രാജ്യത്തെ വ്യാവസായിക കയറ്റുമതി വർദ്ധിച്ചതായും കേന്ദ്രമന്ത്രി പ്രഭു വിലയിരുത്തി കേന്ദ്രം കഴിഞ്ഞ അഞ്ച് വർഷമായി കൊണ്ടുവന്ന മാറ്റങ്ങളിലൂടെയും രാജ്യം അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറികൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

പരസ്പര സഹകരണത്തിന് സാധൃതയുള്ള മേഖലകൾ കൂടുതൽ പഠനവിധേയമാക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു സന്ദർശനവേളയിൽ ശ്രീ നായിഡു പരഗ്വായ് പ്രസിഡന്റ് മാരിയോ അബ്ഡോ ബെനിറ്റസുമായും വൈസ് പ്രസിഡന്റ് ഹ്യൂഗോ വെലാസ്ക്വിസുമായും നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സിൽവിയോ ഒവീലറുമായും കൂടിക്കാഴ്ച നടത്തിയതായി വിദേശകാര്യ വക്താവ് കൂട്ടിച്ചേർത്തു

തിങ്കളാഴ്ച ഇമാം സാഹിബ് ജില്ലയിൽ താലിബാൻ തീവ്രവാദികൾ സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുത്ത്തോട്ടെയാണ് സൈനികാക്രമണം തുടങ്ങിയത്

സംസ്ഥാന ഗവൺമെന്റുകൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സിവിൽ എൻക്ലേവ്സ് തുടങ്ങിയവയുടെ കീഴിലുള്ള എയർസ്ട്രിപ്പുകൾ എന്നിവയുടെ വികസനത്തിനും നവീകരണത്തിനും സമിതി അംഗികാരം നൽകി ഹെലിപ്പാട് ജല എയറോട്രാം എന്നിവയുടെ പുനരുദ്ധീകരണത്തിനും അംഗീകാരം നൽകി

ഇതുവഴി ചെറു നഗരങ്ങളിലും പട്ടണങ്ങളിലും പുതിയ വിമാന സർവീസ് ആരംഭിക്കാനാവും

കുടിയേറ്റക്കാർക്കായുളളുയു്

ഏറ്റുമുട്ടലുകളിൽ മനുഷ്യർ കൊടുക്കേണ്ടുന്ന വിലയുടെ ഞെട്ടിപ്പിക്കുന്ന ചിത്രീക്രണ്മാണ് റിപ്പോർട്ട് എന്ന് ഏജൻസിയുടെ അസ്ട്രീസ്റ്റൻ്റ് ഹൈ കമ്മീഷണർ വോർക്കർ ടർക്ക് പറഞ്ഞു

യമനിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് അപകടമുണ്ടായതായി റിപ്പോർട്ട് ഉളളത്

അഞ്ച് ഏകദിനങ്ങളാണ് പരമ്പരയിൽ ഉള്ളത് മൂന്നാം മത്സരവും ജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ

വനിതാ വിഭാഗത്തിൽ സൈന ഡെൻമാർക്ക് താരം ലൈ ഹൊങ്മാർക്കിനെ തോൽപ്പിച്ചു

രണ്ടു പുരുഷ സിംഗിൾസിൽ ഏഴാം സീഡിലെ ശ്രീകാന്ത് ഇന്തോനേഷ്യൻ താരം ജോനാഥൻ ക്രിസ്റ്റിയെ പരാജയപ്പെടുത്തി

ഇന്ത്യൻ താരം ബി സായ്പ്രണീത് ഇന്നലെ ഹ്ട്രൂങ് കോങ് താരത്തിനോട് പരാജയപ്പെട്ടു

നിലമ്പൂർ പ്ര്യേക്മേഖലയോട് ചേർന്ന പൊലീസ് സ ്റ്റേഷനുകളിലാണ് ആദൃഘട്ടത്തിൽ സുരക്ഷ ശക്തമാക്കിയത് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെ വഴിക്കടവ് കരുവാരക്കുണ്ട് നിലമ്പൂർ എടക്കര പോത്തുകല്ല് കാളികാവ് പൂക്കോട്ടുംപാടം സ്റ്റേഷനുകളിൽ പൊലീസ് ജാഗ്രതാ നിർദേശം നൽകി ഈ സ്റ്റേഷനുകളിലെല്ലാം പ്രത്യേക പരിശീലനം ലഭിച്ച സേനാംഗങ്ങളുടെ സേവനവും ആവശ്യമുള്ള ജീവനക്കാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് അടിയന്തര സാഹചരൃങ്ങളുണ്ടായാൽ നേരിടാൻ ശേഷിയുള്ള ആയുധങ്ങളും ഈ സ്റ്റേഷനുകളിൽ വിതരണംചെയ്തിട്ടുണ്ട്

വൈത്തിരി ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച വൈകിട്ടുമുതൽ മുഴുവൻ സ്റ്റേഷൻ പരിധിയിലും രാത്രികാല പൊലീസ് പട്രോളിങ്ങും ശക്തമാക്കി